ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും

കൊല്ലം ബൈപാസ് പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും

മകര സംക്രാന്തിയോട് അനുബന്ധിച്ചുള്ള പ്രസിദ്ധമായ കുംഭമേളയ്ക്ക് പ്രയാഗ്രാജിൽ തുടക്കമായി

പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ അന്തരിച്ചു

ഏഷ്യൻ കപ്പ് ഫൂട്ബോളിൽ ബഹ്റൈനോട് തോറ്റ് ഇന്ത്യ പുറ ത്തായി

കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പ്ലെട്ടുക്കും

വിശദാംശങ്ങളുമായി ഗോപകുമാർ

ആശ്രാമം മൈതാനമാണ് ഉദ്ഘാടനവേദി

തുടർന്ന് കൊല്ലം കന്റോൺമെന്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മഹാസമ്മേളനത്തെ പ്രധാന മന്ത്രി അഭിസംബോധന ചെയ്യും ബൈപ്പാസ് ഉദ്ഘാടന വേദിയും ഹെലിപാഡും സ്ഥിതി ചെയ്യുന്ന ആശ്രാമം മൈതാനത്തും പരിസരത്തും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്

കൊല്ലത്തെ പരിപാടികൾക്കുശേഷം തിരുവനന്തപുര ത്തെത്തുന്ന പ്രധാനമന്ത്രി രാത്രി ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും ക്ഷേത്രത്തിലും പരിസരത്തും കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആവിഷ്കരിച്ച സ്വദേശി ദർശൻ പദ്ധതിയുടെ കീഴിൽ പൂർത്തിയാക്കിയ നിർമാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ പ്രധാനമന്ത്രി ശിലാഫലകം അനാവരണം ചെയ്യും

പൈതൃക നടപ്പാതയുടെ നിർമാണ്ട് പത്മതീർത്ഥക്കുളത്തിന്റെ നവീകരണം വൈദ്യുതീകരണം സുരക്ഷാ ഉപകരണങ്ങൾ തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെട്ടുത്തിയിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പുണ്യസ്നാനത്തിനായി വൻതോതിലാണ് തീർത്ഥാട കർ പ്രയാഗ്രാജിലേക്ക് എത്തുന്നത്

കാലാവസ്ഥാ പ്രവചനത്തിനുള്ള പ്രത്യേക സേവന കേന്ദ്രവും പ്രവർത്തനം തുടങ്ങി

ശൈതൃകാലത്തിന്റെയും ശൈതൃകാല വിളവെടുപ്പിന്റെയും സമാപനം കൂടിയാണ് ഈ ആഘോഷം

മകരസംക്രാന്തി ഉത്തരായൻ ഭൊഗാലി ബിഹു എന്നി ആഘോഷങ്ങൾക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകളറിയിച്ചു

വ്യോമയാന മേഖലയിൽ വേഗം വളർച്ചു കൈവരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ

എല്ലാവർക്കും പറക്കാനവസരം എന്നതാണ് ഉച്ചകോടിയുടെ ആശയം

ഇതു സംബന്ധിച്ച ഭരണഘടന ഭേദഗതി പ്രാബല്യത്തിൽ വന്നതായി ഗവൺമെന്റ് വിജ്ഞാപനം ചെയ്തു ശനിയാഴ്ചയാണ് രാഷ്ട്രപതി ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ചത്

കഴിഞ്ഞ അർദ്ധരാത്രിയോടെ ഇത് പ്രാബല്യത്തിൽ വന്നു

ചടയമംഗലം ജഡായു എർത്ത്സ്സെന്റർ ഏർപ്പെടുത്തിയപ്രഥമ ജടാ യുസ്മൃതി പുരസ്കാരം ് നടൻ നെടുമുടി വേണുവിന് സമ്മാനിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വിജിലൻസ് ഇടുക്കി യൂണിറ്റ് മുട്ടത്ത് നിർമിച്ച പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഭൌതികദേഹം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിക്കും മീന മാസത്തിലെ സൂര്യൻ സ്വാതിതിരുനാൾ തുടങ്ങി നിരവധി ശ്രദ്ധേയമായ ചിത്രങ്ങൾ സംവി ധാനം ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ വികൃതികൾ രാത്രിമഴ മകരമഞ്ഞ് തുടങ്ങിയവ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ചിലതാണ് ലെനിൻ രാജേന്ദ്രന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി ചരിത്രത്തെ ഡോക്യുമെന്റ് ചെയ്യാനുള്ള അപാരമായ സാധ്യതകൾ സിനിമയിൽ പ്രയോജനപ്പെടുത്തിയ കലാകാരനായിരുന്നു ലെനിൻ രാജേന്ദ്രനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

യോട് ഏകപക്ഷീയമായു രണ്ടു് ഗോളുകൾക്ക് പരാജയവും ഇന്ത്യയ്ക്കുണ്ടായി

മൂന്ന് മത്സരങ്ങളുളള പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ വിജയിച്ച ഓസ്ട്രേലിയ മുന്നിലാണ് വെള്ളിയാഴ്ച മെൽബനിലാണ് അവസാനത്തെ മത്സരം

ഹരിയാനയാണ് മൂന്നാം സ്മാനത്ത്

കർണ്ണാടക തമിഴ്നാട് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് മെഡൽ നിലയിൽ തൊട്ട് പിന്നിലുള്ളത്

സുധാകരൻ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ടോൾ വാങ്ങില്ലു നിയമസഭയിൽ ധനകാര്യമന്ത്രി ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട് വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്രത്തിന് കത്തയക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഉദ്ഘാടനത്തിന് സജ്ജമായ കൊല്ലം ബൈപ്പാസിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്താനെത്തിയതായിരുന്നു മന്ത്രി